രാജ്യത്തെ എല്ലാ കർഷകർക്കും പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ ആനുകൂലൃം നൽകാൻ കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം ചെറുകിട കച്ചവടക്കാർക്കും കർഷകർക്കും പ്ലെൻഷൻ പദ്ധതി നടപ്പാക്കും

ലോകകപ്പ് ക്രിക്കറ്റിൽ റൌണ്ട് റോബിൻ ഇനത്തിൽ ഇന്ന് ന്യൂസിലന്റ് ശ്രീലങ്ക ആസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മൽസരങ്ങൾ

എ ഗവൺമെന്റിന്റെ ആദ്യമന്ത്രിസഭാ യോഗം കർഷകരുടെയും കച്ചുവടക്കാരുടെയും ക്ഷേമത്തിനായി നാല് പ്രപ്പദ്ധതികളാണ് മന്ത്രിസഭാ യോഗം നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പ്രധാനമന്ത്രി കിസാൻ യോജന എല്ലാ കർഷകരിലേയ്ക്കും വ്യാപിപ്പിക്കുൻ് കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു പ്രധാൻമന്ത്രി കിസാൻ പെൻഷ്ൻ യോജന ചെറുകിട വ്യാപാരികൾക്ക് പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധരിക്കുളമ്പുരോഗബാധ നിയന്ത്രണത്തിനായുള്ള പ്രത്യേക പദ്ധതി എന്നിവിയ്ക്കു്ം ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭയോഗം അംഗീകാരം നൽകി വിശദവിവരങ്ങളുമായി ബിന്ദു

ഇതുവരെ മൂന്ന് കോടിലേറെ കർഷകർക്ക് ഈ പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചിട്ടുള്ളതായി കേന്ദ്ര മന്ത്രി നരേന്ദ്രസിംഗ് തോമർ മാധ്യമങ്ങളോട് പറഞ്ഞു

രാജ്യമെമ്പാടുമുള്ള ചെറുകിട ഇടത്തര കർഷകർക്കായുള്ളതാണ് പ്രധാൻമന്ത്രി കിസാൻ പെൻഷൻ യോജന എന്ന പുതിയ പദ്ധതി കർഷകർ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിന് തുല്യമായ തുക കേന്ദ്രവും നിക്ഷേപിക്കും

ഇതിനായി രാജ്യമെമ്പാടും പ്രത്യേക കേന്ദ്രങ്ങളുണ്ടാകും ഏകദേശം മൂന്ന് കോടിയിലേറെ വ്യാപാരികൾക്ക് പദ്ധതിയുടെ പ്രയോജനും ില്ലഭിക്കുമെന്നാണ് പ്രതീക്ഷ

ഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് സംയുക്ത പാർ ലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം

തുടർന്ന് സോണിയയെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷയായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രമേയം പാസാക്കി അതിനിടെ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ രാജിയോഗം അംഗീകരിച്ചില്ല വോട്ടർമാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ശ്രീ രാഹുൽ നന്ദി പറഞ്ഞു തങ്ങൾ ഓരോരുത്തരും ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുകയാണെന്ന കാര്യം എല്ലാ കോൺഗ്രസ് അംഗങ്ങളും ഓർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

നേപ്പാൾ പ്രധാനമന്ത്രി കെ

ക്യൂജ്യങ്ങളുമായുള്ള സൌഹൃദവും സഹകരണവും പൂർവാധികം ്യൂൾക്ടതിയായി തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു

കരസേനാ മേധാവി ബിപിൻ റാവത്ത് വ്യോമസേനാ മേധാവി ബി

ധനോവ നാവികസേനാ മേധാവി കരംബീർ സിംഗ് എന്നിവരും സന്നിഹിതരായിരുന്നു പ്രതിരോധ മന്ത്രിയായ നിർമലാ സീതാരാമനിൽ നിന്നാണ് ശ്രീ രാജ്നാഥ് സിംഗ് ചുമതലയേൽക്കുന്നത്

മുഖ്യമന്ത്രി നവീൻ പട്നായിക്ക് ആണ് ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്

കഴിഞ്ഞ വർഷങ്ങളിൽ തൊഴിലുണ്ടായിരുന്ന നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതാണ് ഈ വർധനക്ക് കാരണം

വികസ്വര രാജ്യങ്ങളുമായുള്ള വ്യാപാരബന്ധം പ്രോത്സാഹിപ്പിക്കുന്ന ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് ജി

പി പട്ടികയിൽനിന്ന് ഇന്തൃയെ ഒഴിവാക്കുമെന്നു ഇക്കഴിഞ്ഞ മാർച്ചിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു

ഈ വ്യാപാര ഉടമ്പടിയിലൂടെ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കുന്നു രാജ്യമാണ് ഇന്ത്യ

ദക്ഷിണ കാശ്മീരിൽ പുൽവാമ ജില്ലയിലെ അവന്തിപ്പോരയിലാണ് ഇന്നലെ വൈകുന്നേരം ഏറ്റുമുട്ടൽ ഉണ്ടായത് കൊല്ലപ്പെട്ട പാകിസ്ഥാൻ പൌരനായ ഉമർ ജയ്ഷെ മുഹമ്മദ് സംഘടനയിൽപ്പെട്ട ആളാണെന്നു തിരിച്ചറിഞ്ഞതായി പൊലീസ് അറിയിച്ചു അവന്തിപ്പോര സ്വദേശിയായ യവർ അഹമ്മദാണ് കൊല്ലപ്പെട്ട മറ്റൊരാൾ

തീവ്രവാദം ഉപേക്ഷിച്ച് ഇവർ സാധാരണജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതാണെന്ന് സംസ്ഥാന പൊലീസ് അറിയിച്ചു കുൽഗാമിലെ പൊലീസിന്റെയും യുവാക്കളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ പരിശ്രമമാണ് ഇവർ തിരികെയെത്താൻ സഹായകമായതെന്നും പൊലീസ് പറഞ്ഞു സുരക്ഷാ കാരണങ്ങളാൽ യുവാക്കളുടെ വ്യക്തിവിവരം പുറത്തുവിട്ടിട്ടില്ല

നിരോധിക്കപ്പെട്ട സംഘടനാ പട്ടികയിലുള്ള ജെയ്ഷെ മുഹമ്മദിന് സാമ്പത്തിക സഹായം നൽകിയതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം തടവിലായ മൂന്നു പേരുടെയും ശിക്ഷാ നടപടികൾ ആരംഭിച്ചതായി പാകിസ്ഥാനിലെ തീവ്രവാദ വിരുദ്ധ വിഭാഗം അറിയിച്ചു

ഇന്നലെ പശ്ചിമബംഗാളിലെ കാളികുണ്ട വ്യോമത്താവളത്തിൽ നടന്ന പരീക്ഷണ പറക്കൽ മോഹനസിംഗ് വിജയകരമായി പൂർത്തിയാക്കി

ഇന്ത്യ ആസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ധാരണയിലെത്തിയിരിക്കുന്നത് പൊതുതാൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ ഇടപെടൽ ശക്തമാക്കാനും തായ്ലന്റിലെ ബാങ്കോക്കിൽ നടന്ന ഉന്നതതല ഉദ്യോഗസ്ഥ സമ്മേളനത്തിൽ തീരുമാനമായി

വിമത നേതാവ് ഖലീഫ ഹഫ്തുർ നേതൃത്വം നൽകുന്ന സൈനൃവും യു എൻ പിന്തുണയോടെ ഗവൺമെന്റ് സൈനവും നടത്തുന്ന യുദ്ധം മൂർച്ഛിച്ച സാഹചരൃത്തിലാണ് പലായനം

ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മണിക്ക് ഇംഗ്ലണ്ടിലെ കാർഡിഫിലാണ് ന്യൂസിലന്റ് ശ്രീലങ്ക പോരാട്ടം

നോട്ടിട്ട്ഹ്ഹാമിൽ ഇന്നലെ വൈകിട്ട് നടന്ന മൽസരത്തിൽ വെസ്റ്റ് ഇന്റീസ് ഷ്ട്രീകിസ്ഥാനെ ഏഴ് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തി

ഒൻപതാം സീഡ് ഉക്രെയിനിയൻ താരം എലീന സ്വീറ്റോലിന പത്തൊൻപതാം സീഡ് ഗാർബൈയിൻ മുഗുരുസയോട് പരാജയപ്പെട്ടു നിലവിലെ ചാമ്പ്യൻ റഫേൽ നദാൽ മൂന്നാം സീഡ് റോജർഫെഡറർ കീ നിഷികോരി സ്തൊയൻ സ്റ്റീഫൻസ് തുടങ്ങിയവർ പ്രീ കോർട്ടറിൽ പ്രവേശിച്ചു